ശരീരം ചവറയിലെ നാട്യധർമ്മിയിൽ പൊതുദർശനത്തിന് വയ്ക്കും

മേഖലയിലെ തേയില ഉൾപ്പെടെയുള്ള കാർഷിക ഉല്പ്പന്നങ്ങൾ കമ്പോളങ്ങളിലേക്ക് എത്തിക്കുന്നതിനും പുതിയ പാത വഴിയൊരുക്കും

ജനങ്ങളുടെ അഭിലാഷങ്ങൾ സാക്ഷാത്ര്ക്ക്രിക്കാനുള്ള പ്രയാണത്തിൽ ഗവൺമെന്റ് എല്ലാ വെല്ലുവിളികളെയും തരണം ചെയ്യുമെന്ന് ലോക്സഭയിൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദിരേഖപ്പെടുത്തിയുള്ള ചർച്ചയ്ക്ക് മറുപടി പറയവേ പ്രധാനമന്ത്രി വൃക്തമാക്കി ഗവൺമെന്റ് സത്യസന്ധതയ്ക്കും സുതാര്യതയ്ക്കും പാവങ്ങൾക്കുവേണ്ടിയുമാണ് നിലക്കൊള്ളുന്നത് രാജ്വത്തെ ജനങ്ങളോട് മറുപടി പറയാനുള്ള ബാധൃത ഗവൺമെന്റിനുണ്ട് രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെ നശിപ്പിക്കുകയാണെന്ന് കോൺഗ്രസ് ആരോപണം പ്രധാനമന്ത്രി നിഷേധിച്ചു കോൺഗ്രസ് ഭരണകാലയളവിൽ ഇത്തരം സ്ഥാപനങ്ങളെ എങ്ങനെയാണ് ദുരുപയോഗപ്പെടുത്തിയതെന്ന് അവർ ചിന്തിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

കൊല്ലപ്പെട്ട യൂണിഫോം ധാരികളായ പത്ത് നക്സലൈറ്റുകളുടെയും മൃതദേഹം കണ്ടെടുത്തതായി ബിജാപ്പൂർ പോലീസ് സൂപ്രണ്ട് മോഹിത് ഗാർഗ് അറിയിച്ചു

ഭവന വാഹന വായ്പാ നിരക്കുകൾ കുറയുന്നതിന് ഇത് കാരണമാകും

റിവേഴ്സ് റീപ്പോ കരുതൽ ധനാനുപാത നിരക്ക് എന്നിവയിൽ മാറ്റം വരുത്തിയിട്ടില്ല നാണയപ്പെരുപ്പം വൻതോതിൽ കുറഞ്ഞതിനാൽ നിരക്ക് കുറക്കുന്നതിൽ അപാകതയില്ലെന്നാണ് ധനനയ സമിതി വിലയിരുത്തിയത്

ഒന്നര വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിരക്കാണിത്

ന്യൂസ് ഡസ്ക് ആകാശവാണി

രാജ്യത്തെ പന്ത്രണ്ട് കോടിയോളം വരുന്ന കർഷകർക്ക് പ്രയോജനം ലഭിക്കുന്നതാണ് പദ്ധതി

ജെ

വിഷയം സംബന്ധിച്ച കോൺഗ്രസ് പ്രഖ്യാപനം ആ പാർട്ടിയുടെ പ്രീണന രാഷ്ട്രീയത്തിന്റെയും ഒളിച്ചോടൽ നയത്തിന്റെയും ഉദാഹരണമാണെന്ന് ബി ജെ

മുത്തലാഖ് ഭരണഘടനാവിരുദ്ധമെന്ന് രാജ്യത്തെ പരമോന്നത കോടതി പോലും വിലയിരുത്തിയ സ്ഥാനത്താണ് പ്രകോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധിയുടെ മറിച്ചുള്ള അഭിപ്രായമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി

കൂടുങ്ങിയവരെ കണ്ടെത്താനായി രക്ഷാപ്രവർത്തനങ്ങളും തുടങ്ങിയിട്ടുണ്ട് മഞ്ഞുവീഴ്ചയെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗതവും സ്തംഭിച്ചു

ഉദംപൂരിൽ ഇന്നലെ നടന്ന ചടങ്ങിൽ കരസേന വടക്കൻ കമാൻഡ് ലഫ്റ്റനന്റ് ജനറൽ രൺബീർ സിങ് മെഡലുകൾ സമ്മാനിച്ചു

ആവശ്യമെങ്കിൽ അനുബന്ധ ചർച്ചകൾ പാകിസ്ഷ്ഠാനീൽ നടത്താൻ തയ്യാറാണെന്ന് വിദേശകാരൃ മന്ത്രാലയ വക്താവ് രൂവീഷ്കുമാർ പറഞ്ഞു

തുടർച്ചയായി രണ്ടാം ദിവസമാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തത് ന്യൂഡൽഹിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ട്രേറ്റിലായിരുന്നു ചോദ്യം ചെയ്യൽ

ഇന്ന് എറണാകുളം ഭാസ്കരീയം കൺവെൻഷൻ സെന്ററിൽ എം

മറ്റെന്നാൾ ചെറുകോൽപ്പുഴ ഹിന്ദു മതപരിഷത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും

പബ്ലിക് ലൈബ്രറി സ്നരസ്വതി ഹാളിൽ രാവിലെ അഖില ഭാരതീയ രാഷ്ട്രീയ മഹാസംഘം സ്ത്രിച്ചടന സെക്രട്ടറി മഹേന്ദ്ര കപൂർ ഉദ്ഘാടനംചെയ്യും

കലക്ടർ ചെയർമാനും എംഎൽ എ മാരായ സി ആർ രാമചന്ദ്രൻ എൻ വിജയൻപിള്ള എന്നിവർ അംഗങ്ങളുമായ സമിതിയാണ് രൂപീകരിച്ചത് കളക്ടറുടെയും ഐ

ഡിയുടെയും സാനിധൃത്തിൽ ക്ഷേത്ര ഭാരവാഹികളുമായി ഇന്നലെ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം ഖനനമേഖലയിലെ കാട്ടിൽ മേക്കതിൽ ക്ഷേത്രം സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

മോസസ് ആന്റണി മത്സരത്തിലെ മികച്ച ത്ര്മായി തിരഞ്ഞെടുക്കപ്പെട്ടു